ന്യൂഡൽഹിയിലെ ജെ എൻ യു വിൽ സ്ഥാപിക്കുന്ന സ്ഥാമി വിവേകാനന്ദന്റെ പൂർണകായ പ്രതിമ്യ പ്രധാനമന്ത്രി ഇന്ന് അനാവരണം ചെയ്യും

ജീവഹാനിയും നാശനഷ്ടങ്ങളും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല

കേരളത്തിൽ തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങി ഇന്നു മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം

ഇന്ത്യ ആസിയാൻ രാജ്യങ്ങളുമായുള്ള തന്ത്രപര പങ്കാളിത്തു സ്ഥിതിഗതികൾ ഉച്ചകോടി വിലയിരുത്തും

ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗ്മായി ഇന്ത്യ ആസിയാൻ കർമപദ്ധതി നടപ്പാക്കുന്നതിനെക്കുറിച്ചും നേതാക്കൾ ചർച്ച ചെയ്യും കോവിഡിന് ശേഷമുള്ള സമ്പദ് ഘടന വീണ്ടെടുക്കാനും സുപ്രധാന പ്രാദേശിക അന്താരാഷ്ട്ര സംഭവവികാസങ്ങളും ഉച്ചകോടിയിൽ പരാമർശിക്കപ്പെടും ഇന്ത്യയും ആസിയാൻ രാജ്യങ്ങളും തമ്മിലുള്ള ഉന്നത ഇടപെടലിനുള്ള അവസരം കൂടിയാണ് ഉച്ചകോടി കഴിഞ്ഞ വർഷം നവംബറിൽ ബാങ്കോക്കിൽ നടന്ന പതിനാറാമത് ആസിയാൻ ഇന്ത്യ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നു പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന എട്ടാമത് ആസിയാൻ ഇന്തൃ ഉച്ചകോടിയാണ് ഭൌമശാസ്ത്രപരമായും ചരിത്രപരമായും സാംസ്കാരികമായും ഇന്ത്യയും ആസിയാനും തമ്മിലുള്ള ബന്ധം ആഴമേറിയതാണ്

വിർച്ചൽ സാങ്കേതികവിദ്യയിലൂടെ നടക്കുന്ന പരിപാടിയിൽ വിദ്യാഭ്യാസ മന്ത്രി രമേഷ് പൊക്രിയാൽ നിഷാങ്കും പങ്കെടക്കും രാജൃത്തെ യുവാക്കൾക്ക് എന്നും പ്രചോദനമാണ് സ്വാമി വിവേകാനന്ദന്റെ ജീവിത ദർശനങ്ങളും ലക്ഷ്യങ്ങളും വിവേകാനന്ദ ദർശനങ്ങൾ കലാതീതമാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായിപ്പെട്ടു

തന്റെ ചിന്തകളും പ്രാർത്ഥനയും ബഹ്റൈൻ രാജാവിനും രാജകുടുംബത്തിനും ജനങ്ങൾക്കും ഒപ്പമുണ്ടെന്ന് പ്രധാനമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു

ജാഗ്രഗത പാലിക്കുന്നുണ്ടെന്നും ഇതുവരെ ജീവഹാനിയോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് സേനാ വക്താവ് കേണൽ ദാവീന്ദർ അനന്ദ് അറിയിച്ചു

മേഘാലയ അസ്സം ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇന്ത്യൻ സൈനൃവും ഇന്റലിജൻസ് വിഭാഗവും നടത്തിയ തന്ത്രപ്രധാന നടപടിയ്ക്കൊടുവിലാണ് രാജ്ക്കൊവയും നാല് സഹായികളും പരാജയം സമ്മതിച്ചത് കൃഴിഞ്ഞ ഒമ്പത് മാസമായി നടത്തുന്ന പരിശ്രമങ്ങളുടെ വിജയമാണ് ഇന്നലെ രാത്രിയിലേതെന്ന് പ്രതിരോധ മന്ത്രാലയം പ്രതിക്ക്രിച്ചു് അസമിലടക്കം ഉൾഫ തീവ്രവാദികൾ നടത്തുന്ന ് ്വിയ്ംസക പ്രവർത്തനങ്ങൾക്കുള്ള വലിയ തിരിച്ചടിയാണ് ദൃഷ്ടി രാജ്കോവയുടെ കീഴടങ്ങൽ

മുതിർന്ന പാർട്ടി നേതാക്കളുമായി ജെഡിയു അധ്യക്ഷൻ നിതീഷ് കുമാർ ഔദ്യോഗിക വസതിയിൽ ഇന്നലെ കൂടിക്കാഴ്ച നടത്തി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ഗവൺമെന്റ് രൂപീകരണം ദീപാവലിക്ക് ശേഷം ഉണ്ടാകുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി കെ സി ത്യാഗി വ്യക്തമാക്കി

അതിനിടെ വികാസ് സീൽ ഇൻസാൻ പാർട്ടി അധ്യക്ഷൻ മുകേഷ് സാഹ്നി ഹിന്ദുസ്ഥാനി അവാം മോർച്ച അധ്യക്ഷൻ ജിതാൻ റാം മാഞ്ചി എന്നിവർ നിതീഷ് കുമാറിനെ കണ്ട് ചർച്ചകൾ നടത്തി

നിയമസഭ തെരഞ്ഞെടുപ്പിലെ പാർട്ടി പ്രകടനം വിലയിരുത്താനായി ആർജെഡി ഇന്നലെ സാമാജികരുടെ യോഗം വിളിച്ചിരുന്നു

മുര്ണസംഖ്യ അമ്പതിനായിരം കടക്കുന്ന ആദ്യ യൂറോപ്യൻ രാജ്യമായി ബ്രിട്ടൻ പസഫിക് ദ്വീപ് രാഷ്ട്രമായ വനുവാതുവിൽ കഴിഞ്ഞ ദിവസം ആദ്യമായി കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്തിരുന്നു

ശാസ്ത്രീയ പക്ഷിനിരീക്ഷണം നടത്തിയ ആദ്യ ഭാരതീയനാണ് അദ്ദേഹം

രാജ്യത്ത് പക്ഷിനിരീക്ഷണം പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചു

പാകിസ്താനിലെയും പക്ഷികളെ സംബന്ധിച്ച് പത്ത് വാല്യങ്ങൾ വരുന്ന ബൃഹത്തായ ഗ്രന്ഥവും അദ്ദേഹം രചിച്ചു

ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ബ്രിട്ടീഷ് ഇതര പൌര്ന്ട്യിരുന്നു സലിം അലി

ഇന്ന് മുതൽ സ്ഥാനാർത്ഥികൾക്ക് പത്രിക സമർപ്പിക്കാം അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വരണാധികാരികൾക്കോ ഉപ വരണാധികാരികൾക്കോ മുന്നിലാണ് പത്രിക സമർപ്പിക്കേണ്ടത്

രോഗവ്യാപനം തടയുന്നതിനായി സംസ്ഥാനം സ്വീകരിച്ച നടപടികൾ ഇന്നലെ നടന്ന അവലോകന യോഗത്തിൽ മഹാരാഷ്ട്ര ആരോഗ്യമന്ത്രി രാജേഷ് തോപ്പെ വിശദീകരിച്ചു

ഏഴ് സംസ്ഥാനങ്ങൾ കൊറോണ വ്യാപനത്തിനെതിരെ സ്വീകരിച്ച നടപടികളെക്കുറിച്ചുള്ള അവലോകന യോഗത്തിലായിരുന്നു ്കേന്ദ്രമന്ത്രിയുടെ പരാമർശം

ഓക്സിജൻ ലഭൃത ഐസിയു കിടക്കകൾ വെന്റിലേറ്റർ ഓക ്സിജൻ ഉൽപാദനം വിതരണ ശേഷി എന്നിവ വർദ്ധിപ്പിക്കാൻ കേന്ദ്രഭരണ പ്രദേശങ്ങൾ സ്വീകരിച്ച നടപടിയെ ക്യാബിനറ്റ് സെക്രട്ടറി അഭിനന്ദിച്ചു

ജലസംരക്ഷണ പ്രവർത്തനങ്ങളിലൂടെ സുസ്ഥിരവികസനം ഉറപ്പാക്കി ചെറുകിട ഇടത്തരം കർഷകർക്ക് ജീവിതമാർഗം ലഭ്യമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ളതായിരുന്നു പദ്ധതി

ട്രൊൻസ്ഫോമറുകളുടെ കരുതൽ ശേഖരം ഉൾപ്പെടെ വകുപ്പിന്റെ ്തയ്യാറെടുപ്പുകളെക്കുറിച്ച് അദ്ദേഹം ആരാഞ്ഞു ട്രാൻസ്ഫോമറ്റുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ അത് പരിഹരിക്കുന്നതിനായി എല്ലാ വൈദ്യുത ഡിവിഷനുകളിലും ട്രാൻസ്ഫോമറുകളുടെ കരുതൽ ശേഖരം ലഭൃത ഉറപ്പുവരുത്താൻ അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി